സ്ഥലങ്ങളിൽ നിതിആയോഗ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വിവരങ്ങൾ കൈമാറിയതിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഇല്ലായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

കിരീടം

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

സ്ത്രീകളും മുതിർന്ന പൌരന്മാരുമുൾപ്പെടെ വലിയ സംഘം വോട്ടിങ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് ഉപ കമ്മീഷണർ ഉമേഷ് സിൻഹ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

വോട്ടിങ് മെഷിനുകൾ കുറച്ചു മാത്രം മാറ്റിസ്ഥാപിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇതെന്നും അദ്ദേഹം വൃക്തമാക്കി

വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്

ബിജെപി അധ്യക്ഷൻ അമിത്ഷാ പശ്ചിമബംഗാളിൽ ഇന്ന് പ്രചാരണം നടത്തും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പഞ്ചാബിലും ബിഎസ്പി അധ്യക്ഷ മായാവതി ഉത്തർപ്രദേശിലും ഇന്ന് പ്രചാരണം നടത്തും

ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഫിജി ജോർജിയ കെനിയ ദക്ഷിണകൊറിയ കിർഗിസ്ഥാൻ മലേഷ്യ മെക്സികോ മ്യാൻമർ റൊമാനിയ റഷ്യ ശ്രീലങ്ക യു

രാജ്യത്ത് സിത്യന്ത്രവും നീതിപൂർവ്വവും ദൃഢതയുമുളള തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതിന്റിധിപ്പസ്ംഘത്തെ അഭിസംബോധന ചെയ്യവേ മുഖ്യ തെരഞ്ഞെടുപ്പ് ക്രമ്മീഷണർ സുനിൽ അറോറ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വിവിധ ്രാജ്യങ്ങൾ കൈകൊളളുന്ന നടപടികൾ അവർ നേരിടുന്ന പ്രശ്മങ്ങൾ എന്നിവ പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും അ്ദ്ദേഹം വ്യക്തമാക്കി വിഷയത്തിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി എന്നിവർ ഉന്നയിച്ച ആക്ഷേപങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി അയോഗ് സി

അമിതാബ് കാന്തിന് കത്തയച്ചു

ഔദ്യോഗിക സന്ദർശനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങളും ഒന്നിച്ച് നടത്തുന്നതിൽ നിന്ന് മന്ത്രിമാർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുളള ചട്ടം പ്രധാനമന്ത്രിക്ക് ബാധകമല്ലാത്തതിനാൽ ഇത് സംബന്ധിച്ച പരാതി തളളിയതായി മുതിർന്ന ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ സന്ദീപ് സക്സേന ന്യൂഡൽഹിയിൽ മാദ്ധ്യമപ്രവർത്തകരോടുപറഞ്ഞു

ശ്രീ ഗിരിരാജിന്റെ പ്പരാമർശങ്ങളെ വിമർശിച്ച കമ്മീഷൻ മാതൃകപെരുമാറ്റച്ചട്ടം നില്മ്പിൽക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്ന് പ്രാനിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മതവു്മായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്താൻ പാടില്ലെന്ന സുപ്രീംകോടതി ഉത്തരവും തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടവും അദ്ദേഹം ലംഘിച്ചതായി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു

തെരഞ്ഞെടുപ്പിനിടെ ആക്രമണം നടത്തുന്നതിന് അദ്ദേഹം ഭരണകക്ഷിയായ ത്രിണമൂൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ത്രിണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതായും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു പശ്ചിമബംഗാളിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഭാരതി വോഷിന് നേരെയുണ്ടായ ആക്രമണം ടിഎംസി യുടെ നിരാശയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് ശ്രീ ജാവ്ദേക്കർ നേരത്തെ പാർട്ടി ആസ്ഥാനത്ത് മാദ്ധ്യമങ്ങളോട് പറഞ്ഞിരുന്നു

സമ്മേളനത്തിന് മുന്നോടിയായി വേൾഡ് ബാങ്ക് ഡയറക്ടർ സമീഹ് വഹാബുമായി കേരള പുനർനിർമാണം സംബന്ധിച്ച വിഷയങ്ങളിൽ അദ്ദേഹം ചർച്ച നടത്തി ചീഫ് സെക്രട്ടറി ടോംജോസ് കേരള പുനർനിർമാണ പദ്ധതി സിഇഒ ഡോ

ഇന്നലെ ആംസ്റ്റർഡാം സന്ദർശിച്ച മുഖ്യമന്ത്രി ആൻഫ്രാങ്ക്ഹൌസ് സന്ദർശിച്ചിരുന്നു

രണ്ട് സംഘങ്ങളായി തിരിയുന്ന ഇവർ ഇന്നും നാളെയുമായി ചുഴലിക്കാറ്റ് വലിയ തോതിൽ ബാധിച്ച പുരി കുർദ ജില്ലകൾ സ്ന്ദർശിക്കും ഭൂവനേശ്വർ മുനിസിപ്പൽ കോർപ്പ്രേഷന്റെ പരിധിയിൽ വരുന്ന ദുരന്ത ബാധിത മേഖലകളിൽ സംഘം ബുധനാഴ്ച സന്ദർശനം നടത്തും തുടർന്ന് സംസ്ഥാന ചീഫ് സ്ക്രിക്ട്ടറി എ

പതി ഉൾപ്പെടെയുള്ള മുതിർന്ന ഗവൺമെന്റ് അധികൃതരൂമായി സംഘം ചർച്ച നടത്തും തുടർന്ന് ചുഴിലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം ഫോനി ചുഴലിക്കാറ്റിൽ തകർന്ന എല്ലാ വീടുകളും പുനർനിർമ്മിക്കുമെന്ന് ഒഡീഷാ മുഖ്യമന്ത്രി നവീൻ പട്നായിക് അറിയിച്ചു പൂർണമായും ഭാഗികമായും തകർന്ന എല്ലാ വീടുകളും പുനർനിർമിക്കാൻ അനുമതി നൽകുമെന്ന് ഇന്നലെ ഭൂവനേശ്വറിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ ശ്രീ പട്നായിക് അറിയിച്ചു ചുഴലിക്കാറ്റിലൂണ്ടായ നാശനഷ്ടങ്ങൾ മറ്റെന്നാൾ മുതൽ കണക്കാക്കി തുടങ്ങുമെന്ന് പുനർനിർമാണ പ്രവർത്തനങ്ങൾ ജൂൺ ആദ്യവാരത്തോടെ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ഇന്നലെ ഗ്യാസ് നിറയ്ക്കുന്ന ജോലികൾക്കിടയിലാണ് ദുരന്തമുണ്ടായത്

ഈസ്റ്റർ ദിനത്തിൽ നട്ടന്നു

അതേസമയം ലോകത്തെ ശക്തരായ രാജ്യങ്ങൾ ആയുധനിർമ്മാണം അവസാനിപ്പിച്ചാൽ തീവ്രവാദവും അവസാനിക്കുമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാലാ സിരിസേന

സാങ്കേതിക മുന്നേറ്റം നടത്തിയ വികസിത രാജ്യങ്ങൾ സമാധാനത്തെയും മനുഷ്യാവകാശത്തെയുംകുറിച്ച് പറയുമ്പോൾ തന്നെ സാങ്കേതിക നേട്ടം ഉപയോഗപ്പെടുത്തി പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു വികസിതരാജ്യങ്ങൾ ആയുധനിർമ്മാണം നിർത്തിയാൽ തീവ്രവാദം അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രാർത്ഥനയ്ക്കിടെ പളളിയിലേക്ക് ഇടിച്ചുകയറിയ തോക്കുധാരികൾ ആളുകൾക്ക് നേരെ വെടിവയ്ക്കുകയായിരുന്നുവെന്ന് സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കി

ഉത്തൂരപ്പടിഞ്ഞാറൻ മേഖലയിലെ പള്ളിക്കു നേരെയുണ്ടായ ആക്രമുണ്ടത്തിൽ അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിൽ സുക്കൈലാബിയ നഗരത്തിൽ നാശനഷ്ടമുണ്ടായതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു

ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഒരു റണ്ണിന് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ പരാജയപ്പെടുത്തിയാണ് മുംബൈ കിരീടമണിഞ്ഞത്

വ്യാപാര സംവിധാനത്തിൽ ബഹുമുഖ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് സമ്മേളനം എന്നതും ശ്രദ്ധേയമാണ് രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തുടർ നടപടിക്കും സമ്മേളനം സഹായകമാകും

ബാഴ്സൂലോണയിൽ ഇന്നലെ നടന്ന എഫ്